വടക്കു കിഴക്കൻ കാലവർഷം തെക്കേ ഇന്ത്യയിൽ എത്തി

തിരുവനന്തപുരത്ത് നടന്ന ഏകദിന അന്താരാഷ്ട്ര പ്രകിക്കറ്റ് മത്സരത്തിൽ ഇന്തൃയ്ക്ക് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒൻപതു വിക്കറ്റിന്റെ തകർപ്പൻ ജയം

ഇരുരാജ്യങ്ങളും തമ്മിൽ വിനോദസഞ്ചാര മേഖലയിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക വിവിധ മേഖ്ച്ചുയിൽ വിവര വിനിമയം ഊർജ്ജിതപ്പെടുത്തുക എന്നിവയാണ് ധാരണാപത്രത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ

ഗതാഗത വിദ്യാഭ്യാസത്തിന് ഇന്ത്യയും റഷ്യയും ഒപ്പു വച്ച ധാരണാപത്രത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നല്കി ഒഡീഷയിലെ ജാർസുഗുഡ വിമാനത്താവളത്തെ വീർ സുരേന്ദ്രസായി വിമാനത്താവളം എന്ന് പുനർനാമകരണം ചെയ്തും മന്ത്രിസഭ അംഗീകരിച്ചു

നിർഭയഫണ്ടിനു കീഴിൽ ലക്നൌ ഉൾപ്പെടെ എട്ടു നഗരങ്ങളിലാണ് സുരക്ഷിത നഗരം പദ്ധതി നടപ്പിലാക്കുന്നത് മുംബൈ ഡൽഹി കൊൽക്കത്ത ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് അഹമ്മദാബാദ് എന്നിവയാണ് നഗരങ്ങൾ പൊതു സ്ഥലങ്ങളിൽ സ്ത്രീ സുരക്ഷ മറ്റു ശക്തമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം

നേരത്തേ വിവിധ പാർട്ടി പ്രതിനിധികളുമായി രാഷ്ട്രീയ നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്ടോട്ടെട്ടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് സംഘം നിർദ്ദേശങ്ങൾ നൽകി റായ്പൂരിൽ ജില്ലാ വരണാധികാരികൾ വിവിധ ജില്ലകളിലെ പൊലീസ് സൂപ്രണ്ടുമാർ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായും കമ്മീഷൻ ചർച്ച നടത്തി സമൂഹമാധ്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി യുവാക്കളെ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ പ്രേരിപ്പിക്കണമെന്നും കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു

പാർട്ടി എം

താമ്രധ്വജ് സാഹു ദുർഗ്ഗ്ഗാമ നിയമസഭാ സീറ്റിലും മുൻ എം എൽ എ കുൽദീപ് ജുനേജ വടക്കൻ റായ്പൂരിലും മത്സരിക്കും ബിലാസ്പൂർ സീറ്റിൽ സൈലേഷ് പാണ്ഡേ തെരഞ്ഞെടുപ്പിനെ നേരിടും സംസ്ഥാനത്തെ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്

ഗവണ്മെന്റ് പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിൽ ദൂരദർശൻ അതിന്റെ ഉത്തരവാദിത്വം ശരിയാംവണ്ണം നിർവ്വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു പ്രസാർഭാരതി സാഹുവിന്റെ കുടുംബത്തോടൊപ്പമുണ്ടാവുമെന്ന് ശ്രീ

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അദ്ധ്യക്ഷനായ ബെഞ്ച് പൌരത്വ രജിസ്റ്ററിൽ പേര് ചേർക്കുന്നതിനായി അപേക്ഷകർക്ക് അഞ്ച് രേഖകൾ അടിസ്ഥാനമാക്കാൻ അനുമതി നൽകി നേരത്തേ ഈ രേഖകളെ ആസം ദേശീയ പൌരത്വ രജിസ്റ്ററിന് നേതൃത്വം നൽകുന്ന കോ ഓഡിനേറ്റർമാർ നിരസിച്ചിരുന്നു

ടി

ആവശ്യമായ വിവരം നൽകി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉപയോക്താക്കൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും ലഭിക്കും ഇതുപയോഗിച്ച് ലോഗിൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ സൌകരൃം നിലവിൽ വന്നതോടെ യാത്രക്കാർക്ക് ടിക്കറ്റുകൾക്കായി റിസർവേഷൻ കൌണ്ടറിൽ ക്യൂ നിന്നു ബുദ്ധിമുട്ടേണ്ടി വരില്ല വളരെ പ്രയോജനപ്രദമായ ഈ സൌകരൃം യാത്രക്കാർ സ്വാഗതം ചെയ്യുമെന്ന് റെയിൽവേ ബോർഡ് അംഗം ഗിരീഷ് പിള്ള ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

തമിഴ്നാട് പുതുച്ചേരി തീരമേഖലകളിലും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും തെക്കൻ ജില്ലകളില്ടും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരങ്ങളിലും തുലാവർഷം ഏത്തിയതായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം ഡയറക്ടർ എസ്്ബാലചന്ദ്രൻ ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തമിഴ്നൌട്ട് കേരള റസൽസീമ തെക്കൻ കർണ്ണാടക എന്നിവടങ്ങളി്റ്ല് അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ തുലാവർഷം നാളെ ആരുംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ടി ഉദ്യോഗസ്ഥർ ഗവണ്മെന്റുമായി കൈകോർത്തു പ്രവർത്തിക്കണെന്ന് ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ്

സാങ്കേതിക അറിവ് പകർന്നുകൊടുക്കണമന്ന് മന്ത്രി ഐ ടി സമൂഹത്തോട് ആഹാനം ചെയ്തു

ചെലവാക്കിയ തുകയുമായി താരതമ്യം ൂചെയ്യുമ്പോൾ മതിയായ ലാഭം കിട്ടുന്ന ഗതാഗത സംവിധാനം ക്ട്കാണ്ടുവരാനുള്ള ശ്രമമാണ് മന്ത്രാലയം നടത്തുന്നതെന്നും ക്ലോന്ദ്മന്ത്രി പറഞ്ഞു പരിസ്ഥിതി സൌഹൃദ ഇന്ധനങ്ങളായ എത്തിനോൾ മെത്തനോൾ വൈദ്യുതി എന്നിവ ഉപയോഗിക്കുന്നതു് പ്രിച്ചുത്ത് മലിനീകരണം തടയാൻ കഴിയുമെന്നും ശ്രീ

ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു

നികുതിദായകരുടെ എണ്ണത്തിലുള്ള വർദ്ധന ഒറ്റ നികുതി നികുതി അധികാരികളുടെ ഇടപെടൽ കുറഞ്ഞത് എന്നിവയാണ് ചരക്ക് സേവന നികുതിയുടെ വിജയമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു